കാഴ്ചപരിമിതർക്കു കൂടി മ്നസ്സിലാക്കാൻ കഴിയുന്ന തരത്തിലുള്ള നാണയങ്ങളുടെ ശ്രേണി പ്രധാനമന്ത്രി പുറത്തിറക്കി

പിയിലും ബിഹാറിലും താപവൈദ്യുത നിലയങ്ങൾക്കും അനുമതി

ജമ്മുകശ്മീരിലെ കുപ്വാരയിൽ സുരക്ഷാസേന പാക് സ്വദേശിയായ ജെയ്ഷെ മുഹമ്മദ് ഭീകരനെ വധിച്ചു

സിക്കിമിലെ ഗാങ്ടോക്ക് നാംചി അരുണാചൽപ്രദേശിലെ പാസിഘട്ട് ഇറ്റാനഗർ ത്രിപുരയിലെ അഗർത്തല എന്നിവിടങ്ങളിലെ ഇന്റഗ്രേറ്റഡ് കമാൻഡ് ആന്റ് കൺട്രോൾ സെന്ററുകളുടെ ഉദ്ഘാടനം വീഡിയോ കോൺഫറൻസിംഗിലൂടെ നിർവ്വഹിക്കുകയായിരുന്നു അദ്ദേഹം വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ നഗരങ്ങൾക്ക് രാജ്യത്തിന്റെ വളർച്ചയിൽ നിർണ്ണായക പങ്കു വഹിക്കാൻ കഴിയുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു

കാഴ്ചശക്തിയില്ലാത്ത കുട്ടികൾ പരിപാടിയിൽ പ്രത്യേക ക്ഷണിതാക്കളായിരുന്നു അവസാന വരിയിലെ അവസാന വ്യക്തിയിലേക്കും എത്തുക എന്ന കാഴ്ചപ്പാടോടെയാണ് ഗവൺമെന്റ് പ്രവർത്തിക്കുന്നതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു

കിഷ്ത്വാർ ജില്ലയിൽ ചെനാബ് നദിയിലാണ് അണകെട്ടുന്നത്

പദ്ധതിയുടെ ശിലാസ്ഥാപനം കഴിഞ്ഞ മാസം പ്രധാനമന്ത്രി നിർവഹിച്ചിരുന്നു

സിവിൽ പ്രതിരോധ മേഖലകളിലായിരിക്കും കേന്ദ്രീയ വിദ്യാലയങ്ങൾ അനുവദിക്കുക മുംബൈ അർബൻ ഗതാഗത പദ്ധതിയുടെ മൂന്നാം ഘട്ടത്തിനും സാമ്പത്തികകാര്യ സമിതി അംഗീകാരം നല്കി പദ്ധതിയുടെ മൂന്ന് എ ഘട്ടത്തിനാണ് അനുമതി ലഭിച്ചത്

പശ്ചിമ ബംഗാളിലെ നാരായിൺ ്ഘട്ടിൽ നിന്നും ഒഡീഷയിലെ ഭദ്രഖിലേക്ക് മൂന്നാമത്തെ ഐയിൽവേ ലൈൻ നിർമ്മിക്കുന്നതിനും കേന്ദ്രമന്ത്രിസഭയുടെ സ്സാ്മ്പത്തികകാര്യ സമിതി അംഗീകാരം നല്കി

ന്യൂസ് ഡസ്ക് ആകാശവാണി

അധ്യാപക നിയമനത്തിൽ പട്ടിക വിഭാഗങ്ങൾക്കും പിന്നാക്ക വിഭാഗങ്ങൾക്കുമുള്ള ഭരണഘടനാപരമായ സംവരണ അവകാശം സംരക്ഷിക്കാൻ ലക്ഷ്യമിട്ടാണ് ഓർഡിനൻസ് കൊണ്ടു വരുന്നത്

രാജ്യത്തെമ്പാടുമായി അയ്യായിരത്തിലേറെ അധ്യാപക തസ്തികകളിൽ ഇതോടെ ഉടൻ നിയമനം നടത്താനാകും

സംസ്ഥാന ഗവണ്മെന്റുകളുമായി ചേർന്ന് പ്രളയ സാധ്യതാ മേഖലകളിൽ സുരക്ഷയും മുൻകരുതലും ഒരുക്കാനുള്ള പദ്ധതികളാണ് ആവിഷ്ക്കരിച്ചിരിക്കുന്നത് ഫ്ളെഡ് മാനേജ്മെന്റ് ആന്റ് ബോർഡർ ഏര്യാസ് പ്രോഗ്രാം അഥവാ എഫ്

പന്ത്രണ്ടാം പദ്ധതിയിലെ രണ്ട് പ്രത്യേക മേഖലകൾ സംയോജിപ്പിച്ചാണ് പുതിയ പദ്ധതി ആവിഷ്ക്കരിച്ചത്

സി എച്ച് എസിന്റെ പരിധി വിപുലമാക്കുന്നതിന് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നല്കി രണ്ടാം ലോകയുദ്ധത്തിൽ പങ്കെടുത്ത സൈനികർക്കും എമർജൻസി കമ്മീഷൻ ഓഫീസർമാർക്കും ഷോർട്ട് സർവ്വീസ് കമ്മീഷൻഡ് ഓഫീസർമാർക്കും കാലാവധി പൂർത്തിയാകുന്നവർക്കും സ്സ്നിനിക സേവനം അവസാനിച്ചവർക്കും ഈ കൃപ്പുക്ചതിയിലൂടെ ആരോഗ്യ സേവനങ്ങൾ ലഭ്യമാക്കാനിറ്റ് അനുമതി നല്കിയത് ഇതോടെ ഇ സി എച്ച്

യുദ്ധത്തിൽ വീരചരമം പ്രാപിച്ച ജവാന്മാരുടെ വിധവകളെ ഇ

മുൻ സുപ്രീംകോടതി ജഡ്ജി രഞ്ജന പ്രകാശ് ദേശായിയുടെ നേതൃത്വത്തിലുള്ള തെരഞ്ഞെടുപ്പ് സമിതി ആവശ്യമായ കൂടിയാലോചനകൾ പൂർത്തിയാക്കിയതായി അറ്റോർണി ജനറൽ കെ

വേണുഗോപാൽ ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗോഗോയ് അധ്യക്ഷനായ ബഞ്ചിനെ അറിയിച്ചതിന്റെ ്തുടർന്നാണ് തീരുമാനം ലോക്പാൽ ചെയർമാൻ ജുഡീഷ്യൽ അംഗം നോൺ ജുഡീഷ്യൽ അംഗം എന്നിവരുടെ തെരഞ്ഞെട്ടൂപ്പിനായി ദ പേരടങ്ങിയ പാനൽ സമിതി സമർപ്പിക്കും

ജയ്ഷെ മുഹമ്മദ് എന്ന ഭീകര സംഘടനയിൽപ്പെട്ട അൻവർ എന്ന പാക് സ്വദേശിയാണ് കൊല്ലപ്പെട്ടത് ഇയാളിൽ നിന്ന് പിസ്റ്റളുകളും മറ്റ് സ്ഫോടക വസ്തുക്കളും കണ്ടെടുത്തിട്ടുണ്ട്

രാജ്യത്തിന്റെ പോരാട്ടം തീവ്രവാദികൾക്കും ഭൂട്ടീക്ടർക്കും എതിരെയാണെന്ന് അദ്ദേഹം ട്വീറ്റിൽ കുറിച്ചു

പഞ്ചസാര മില്ലൂകൾക്ക് കൂടുതൽ ധനവിനിയോഗത്തിനും എഥനോൾ അടങ്ങിയ പെട്രോൾ തുടങ്ങിയ മൂല്യവർദ്ധിത ഉത്പന്നങ്ങളുടെ നിർമ്മാണം ത്വരിതപ്പെടുത്തുന്നതിനും ഇത് സഹായകമാകും

നടപടി വസ്ത്രമേഖലയിൽ മത്സരം സൃഷ്ടിക്കാൻ സഹായകമാകും

അഞ്ച് മത്സരമുള്ള പരമ്പരയിൽ ആദ്യ രണ്ട് മത്സരങ്ങൾ വിജയിച്ച ഇന്ത്യ മൂന്നാം മത്സരവും ജയിച്ച് പരമ്പര സ്വന്തമാക്കാമെന്ന പ്രതീക്ഷയിലാണ്

അഞ്ച് വിക്കറ്റിനാണ് ഇംഗ്ലണ്ട് വിജയിച്ചത്

ന്യൂഡൽഹിയിൽ നിന്ന് വീഡിയോ കോൺഫറ്റെൻസിംഗിലൂടെ കേന്ദ്ര മന്ത്രി പീയുഷ് ഗോയൽ പ്പിർമ്മാണ ഉദ്ഘാടനം നിർവ്വഹിച്ചു കോച്ച് ടെർമീന്റൽ യാഥാർത്ഥ്യമാകുന്നതോടെ തിരുവനന്തപുരത്തേക്ക് കൂടുതൽ ട്രെയിനുകൾ അനുവദിക്കാനാകുമെന്ന് മന്ത്രി പറഞ്ഞു നേമം ടെർമിനൽ യാഥ്യാർത്ഥ്യമാകുന്നതോടെ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലെ ട്രെയിനുകളുടെ തിരക്ക് ഒഴിവാക്കാനാകും

ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ നിർവ്വഹിക്കും

സി ഡി

ലോകമെമ്പാടുമുള്ള കേരളീയ വനിതകൾക്ക് ഗവർണർ ജസ്റ്റിസ് പി സദാശിലം വനിതാദിന ആശംസ നേർന്നു

റഫേൽ ഇടപാടിൽ കാണാതായ ഫയലുകളെ കുറിച്ച അന്വേഷിക്കണമെന്നും ഇക്കാര്യത്തിൽ പ്രധാനമന്ത്രി കാര്യാലയത്തിന്റെ പങ്ക് പുറത്തു കൊണ്ടു വരണമെന്നും നേരത്തെ രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടിരുന്നു